മൂന്ന് ഹൈക്കോടതി ജസ്റ്റിസൂമാർ സുപ്രീംകോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു

അമേരിക്ക ഇറാനെതിരെ പ്പീ ും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി

പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി എൻ ഡി എ ഗവൺമെന്റ് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി യാത്രകൾ സംഘടിപ്പിക്കും

പിന്നീട് തൃശൂരിലെത്തിയ രാഷ്ട്രപതി സെന്റ് തോമസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്താനായി യാത്ര തിരിച്ചു മൂന്ന് മണിയോടെ കൊച്ചിയിൽ തിരികെ എത്തുന്ന രാഷ്ട്രപതി പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും ഇന്നലെ തിരുവനന്തപുരത്ത് നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജനാധിപതൃത്തിന്റെ ഉൽസവം പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തിരുന്നു

മാനഭംഗ കേസുകൾ വനിതാൻ ജഡ്ജി കൈകാരൃം ചെയ്യാനും മൊഴി രേഖപ്പെടുത്തുന്നത്തിന്റ് വനിതാ പോലീസ് ഓഫീസറെ നിയോഗിക്കാനും ബില്ലിൽ പ്യവസ്ഥയു ് ബലാൽസംഗ കേസുകളിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം ലഭ്യമാക്കില്ലെന്നും കേന്ദ്രമന്ത്രി ചർച്ചയ്ക്കിടെ അറിയിച്ചു

ദേശീയ പട്ടികവിഭാഗ കമ്മീഷന് സമാനമായി ഒ ബി സി വിഭാഗങ്ങൾക്ക് ഭരണഘടനാ പദവിയോടെ ദേശീയ കമ്മീഷൻ രൂപീകരിക്കാൻ ഉദ്ദേശിച്ചുകൊ ുള്ളതാണ് ബിൽ

സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ സാമൂഹൃവും വിദ്യാഭ്യാസപരവുമായ ഉയർച്ച ബിൽ ഉറപ്പു വരുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി താവർചന്ദ് ഗഹ്ലോട്ട് പറഞ്ഞു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിലും ബിൽ പാസ്സാക്കുന്നതിലും അംഗങ്ങൾ കാണിച്ച ശുഷ്ക്കാന്തിയെ മന്ത്രി അഭിനന്ദിച്ചു അധ്യക്ഷൻ ഉപാദ്ധ്യക്ഷൻ എന്നിവരെ കൂടാതെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉ ാവുക

രാജ്യത്തെ ഒ ബി സി ജനവിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ര ് തീവ്രവാദികളെ സൈന്യം വധിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് ഇന്ദിര ബാനർജി ഒറീസ ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് വിനീത് സരൺ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് കെ

ജോസഫ് എന്നിവരാണ് ഇന്ന് സുപ്രീംകോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്

ഉത്തർപ്രദേശിലെ ദിയോറയിൽ കെയർഹോമിൽ പെൺകുട്ടികൾ ലൈംഗിക ആക്രമണത്തിന് ഇരയായ സംഭവത്തെച്ചൊല്പി സഭിയിൽ ബഹളം ഉയർന്നതിനെ തുടർന്നാണ് സഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചത് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗാണ് ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ഷീജ

എന്നാൽ മേഘാലയ മിസോറാം ത്രിപൂര എന്നിവിടങ്ങൾ എച്ച് ഐ വി ബാധിതരുടെ പുതിയ പ്രദേശങ്ങളായി മാറിയിട്ടുടെ ന്ന് അവർ പറഞ്ഞു അനാരോഗ്യകരമായ ലൈംഗിക രീതികളും മയക്ക്മരുന്നുകൾ കുത്തിവയ്ക്കുന്നതുമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എയ്ഡ്സ് രോഗ ബാധിതരുടെ എണ്ണം ഗണ്യമായി ഇന്നലെ ലോക്സഭയിലെ വർദ്ധിക്കാൻ കാരണം

ത്രിപുര മിസോറാം മേഘാലയ എന്നിവിടങ്ങളിൽ എയ്ഡ്സ് ബാധിതരായ ലൈംഗിക തൊഴിലാളികളുടെ എണ്ണുവും കൂടുതലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ദേശീയ എയ്ഡ്സ് നിയന്ത്രണ സംഘടനയുടെ കണക്കനുസരിച്ച് മിസോറാം നാഗാലാൻഡ് മേഘാലയ ത്രിപുര മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതർ ഉള്ളത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുനമ്പത്ത് നിന്നും പോയ ഓഷ്യാനിക് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ മൂന്നു മണിയോടെ രാജ്യാന്തര കപ്പൽ ചാലിലാണ് അപകടം ഉ ായത്

അസമിൽ നിന്ന് വരുന്ന സന്ദർശകരുടെ രേഖകൾ അയൽ സംസ്ഥാനങ്ങൾ പരിശോധിക്കുന്നത് ശ്രദ്ധയിൽപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി വിഷയവുമായി ബന്ധപ്പെട്ട് മേഘാലയയിലേയും അരുണാചൽപ്രദേശിലേയും ഡി ജി പി മാരുമായി സംസാരിച്ചതായും അസം ഡി ജി പി കുലാധർ സൈക്കിയ ആകാശവാണിയോട് പറഞ്ഞു

നാഗാസിന് സമ്പന്നമായ പൈതൃകവും ശക്തമായ സംസ്കാരവുമാണ് ഉള്ളത് ആദരവിന്റെ മുദ്രയാണ് നാഗത്തൊപ്പി എന്നും അതൊരു വിചിത്രമായ സംഭവം അല്ലെന്നും റിയോ ട്വീറ്റ് ചെയ്തു

അഭിപ്രായ സമന്വയത്തിലൂടെ ഉപാധൃക്ഷനെ തെരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം രാജ്യസഭയോട് അഭ്യർത്ഥിച്ചു നാളെ ഉച്ചവരെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാം

കുര്യൻ വിരമിച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതിയെകുറിച്ച് മകൻ സ്റ്റാലിനോടും ബന്ധുക്കളോടും ചോദിച്ചറിഞ്ഞു

ഇത് ബാങ്കിംങ് ഇടപാടുകളെയും വാണിജ്യ വ്യാപാരത്തെയും കർശനമാക്കുമെന്നും അറിയിച്ചു